പ്രധാനമന്ത്രി വടക്കു കിഴക്കൻ മേഖലയെ നിയമം പ്രതികൂലമായി ബാധിക്കില്ലെന്നും ശ്രീ

ജമ്മു ശ്രീനഗർ ദേശീയ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

ബോധവൽക്കരണത്തിലൂടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രി

അബുദാബിയിൽ ഇന്ന് തുടക്കമാകും

വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ഇന്നലെ പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവ ഇന്ത്യയ്ക്കായി വിവേകാനന്ദ സ്വാമിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ യുവജനങ്ങളുടെ പിന്തുണ വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൌരത്വ നിയമത്തെക്കുറിച്ച് ചില യുവാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉള്ളതായി അദ്ദേഹം ചൂിക്കാട്ടി നിയമം സംബന്ധിച്ച തർക്കങ്ങൾ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടി പൌരത്വ നിയമ ഭേദഗതി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പശ്ചിമബംഗാളിന്റെ വികസനത്തിനായി എല്ലാ സഹായവും നൽകുമെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി ഉറപ്പുനൽകി ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി കിഷൻ സ്ട്മ്മാൻ നിധി യോജന എന്നിവ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കൃഷ്ണിയുട്മന്നും നരേന്ദ്രമോദി പറഞ്ഞു

പുൽവാമ ജില്ലയിലെ ത്രാൾ മേഖലയിൽ ഇന്നലെയായിരുന്നു ഏറ്റുമുട്ടൽ ഹിസ്ബുൾ കമാൻഡർ ഹമ്മദ് ഖാനാണ് കൊല്ലപ്പെട്ടതെന്ന് കശ്മീർ മേഖലാ ഐ ജി വിജയ്കുമാർ പറഞ്ഞു ഒട്ടേറെ ആയുധങ്ങളും കടുത്തിട്ടു്

മൂടൽമഞ്ഞിനെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത ഇന്നലെ രാത്രി വീും അടച്ചു

യാത്ര പുറപ്പെടും മുൻപ് റോഡിന്റെ സ്ഥിതി മുൻകൂട്ടി അറിഞ്ഞിരിക്കണമെന്ന് ദേശീയപാത അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കശ്മീറിന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്നലെ രാത്രി മഴയും മഞ്ഞു വീഴ്ചയും അനുഭവപ്പെട്ടിരുന്നു

കേരളത്തിലും ഇന്ന് ദുഃഖാചരണമാണ്

ഇന്ത്യ ഒമാൻ ബന്ധം സുദൃഡമായി തുടരുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു

കീടങ്ങളിൽ നിന്നും വിളനാശിനികളിൽ നിന്നും കരിമ്പൂ കൃഷ്ടിയെ സംരക്ഷിക്കുന്നതിനാണ് ബോധ്യമ്പ്ക്ർണം രാജസ്ഥാനിലും ഗുജറാത്തിലും കീടങ്ങളുടെ ആക്ടുമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്യ്ഥാനത്ത് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചത് ഇതു സ്ട്ബ്സ്ഡിച്ച് കരിമ്പ് പഞ്ചസാര കമ്മീഷണർ സജ്ഞയി ആർ ഭൂശ്രഡ്ഡി എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും കരിമ്പു ഗവേഷണ ശാസ്ത്രജ്ഞർക്കും കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നല്കി

അതികഠിനമായ ശീതകാല രാവുകൾക്ക് അന്ത്യം കുറിച്ചാണ് ഉത്സവം പഞ്ചാബ് ഹരിയാന ഹിമാചൽപ്രദേശ് ഡൽഹി ജമ്മു ചണ്ഡിഗഢ് എന്നിവിടങ്ങളിലാണ് പ്രധാന ആഘോഷം

സമുദായ സൌഹാർദ്ദത്തിന്റെ വിളംബരം കൂടിയാണ് വിളവെടുപ്പുത്സവം അയൽക്കാർക്കും സുഹൃത്തുകൾക്കും കാർഷികോത്പന്നങ്ങൾ സമ്മാനിക്കുന്നതും ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് ലോഹ്റി ആഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി രാം സ്ഥ് കോവിന്ദ് ജനങ്ങൾക്ക് ആശംസ പകർന്നു ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉാകട്ടെ എന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

ആഗോള ഉപഭോഗം ഉത്പാദനം നിക്ഷേപം എന്നിവ സംബന്ധിച്ച് പുനർവിചിന്തനം നടത്താട്ട് എന്ന്താണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രമേയം

പുനഃചംക്രമണത്തിലൂടെ സമ്പദ് വൃദ്ധസ്ഥയെ പിന്തുണയ്ക്കുക ഒറ്റത്തവണ ഉപയോഗിക്കുന്നുപ്ലാസ്റ്റിക്കുകളെ ഒഴിവാക്കുക എന്നിവ സംബന്ധിച്ച് ഉച്ചകോടി ചർച്ച് ചെയ്യും അന്താരാഷ്ട്ര പുനരുപയോഗ ഊർജ്ജ ഏജൻസി അബ്മുദ്ദാങ്ഖിയിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനത്തിൽ സെക്രട്ടറീ അനന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധിതല സംഘം പങ്കെടുത്തു

വാഹനാപകടം കഴിഞ്ഞ വർഷം ഉായതിന്റെ പകുതിയായി കുറക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ഇതിനായി കർശന പരിശോധന ആവശ്യമാണ്

ശശീന്ദ്രൻ അധ്യക്ഷനായി

ഒരു മാസത്തിനുള്ളിൽ ഇവ പൂർണമായി നീക്കം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഫ്ളാറ്റ് പൊളിക്കലിന്റെ ച്ചുമതലയുള്ള സബ്കളക്ടർ സ്നേഹിൽകുമാർ സിങ്ങ് ആകാശവാണിയോട് പറഞ്ഞു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യു്ന്നത് ഇന്നോ നാളെയോ ആരംഭിക്കും

അമേരിക്കൻ സൈനികർ തങ്ങിയ വടക്കൻ ബാഗ്ദാദിലെ അൽ ബാലദ് വ്യോമ കേന്ദ്രത്തിലാണ് അക്രമണം ഉ ായത്

എന്നാൽ അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം സൈനികരും താവളത്തിൽ നിന്നും മടങ്ങിയിരുന്നതിനാൽ കാര്യമായ അപകടമുായില്ലെന്ന് അമേരിക്ക അറിയിച്ചു അതിനിടെ ഇറാനിൽ ഗവണമെന്റിനെതിരെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനെ അമേരിക്ക അപലപിച്ചു ഉക്രയിൻ വിമാനം ഇറാൻ വെടിവച്ചിട്ടതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് വിമാനം അബദ്ധത്തിൽ വെടിവച്ചിട്ടതാണെന്ന് ഇറാൻ സമ്മതിച്ചതിനു പിന്നാലെയാണ് രാജ്യത്ത് പ്രക്ഷോഭം തുടങ്ങിയത് ആക്രമണം അവസാനിപ്പിച്ച് ഇറാൻ കൂടിയാലോചനകൾക്ക് തയ്യാറാവണമെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആവിശ്യപ്പെട്ടു നയതന്ത്രമാർഗ്ഗമല്ലാതെ ഇറാന് മറ്റൊരു ഷ്ട്രീയുമില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വിറ്ററ്റിൽ ക്കുറിച്ചു

മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ സഭയിൽ വച്ച ബില്ലിൻ മേൽ ഇപ്പോൾ ചർച്ച തുടരുകയാണ്

ഒമ്പത് സ്വർണ്ണവുമായി ഡൽഹി രാമതും എട്ട് സ്വർണ്ണവുമായി ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനത്തുമാണ്

പെൺകുട്ടികളുടെ സൈക്കിളിംഗിൽ അസ്സമിന്റെ ഗംഗോത്രി ബോർദലോയിക്കാണ് സ്വർണ്ണം മൂന്നു സ്വർണ്ണം ഉൾപ്പെടെ ഏഴ് മെഡലുകളുമായി കേരളം ഒൻപതാം സ്ഥാനത്തു്

പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിന്റെ ആൻസി സോജനാണ് സ്വർണ്ണം ആൻസി ഇന്നലെ ലോംഗ്ജമ്പിലും സ്വർണ്ണം നേടിയിരുന്നു